ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് ചൂടേറി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയും ഇന്ന് കർണാടകയിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും

മുൻ അഡീഷണ്ടൽ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോ

ബാബുപോളിന് സാംസ്കാരിക കേരളത്തിന്റെ അന്ത്യാഞ്ജലി സംസ്കാരം നാളെ കുറുപ്പുംപടിയിൽ

ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രം

എല്ലിൽ ഇന്ന് രണ്ട് പോരാട്ടങ്ങൾ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കിംഗ്സ് ഇലവൻ പഞ്ചാബ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെയും നേരിടും

പ്രചാരണത്തിൽ പരമാവധി മുൻതൂക്കം നേടാനുള്ള ശ്രമത്തിലാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും പ്രധാന രാഷ്ട്രീയ പാർട്ടികളെല്ലാം മുതിർന്ന നേതാക്കളെയാണ് പ്രചാരണ രംഗത്തിറക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിലും കർണാടകത്തിലും വിവിധ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും

ജെ

അധ്യക്ഷൻ ഇന്ന് ഉച്ചയ്ക്കുശേഷം തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കാനായി ഉത്തർപ്രദേശിൽ എത്തും

ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത് വിവിധ പ്രചരണ യോഗങ്ങളിൽ പങ്കെടുത്ത് പരമാവധി വോട്ട് നേടാനുള്ള സ്ഥാനാർത്ഥികളുടെ യത്നത്തിൽ പങ്കാളികളായി പ്രധാ നമന്ത്രി നരേന്ദ്രമോദി എൻ

എ

വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പി ക്കാനെത്തിയ കോൺഗ്രസ്സ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അടുത്ത ആഴ്ച വീണ്ടും കേരളത്തിൽ എത്തുന്നുണ്ട്

എം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് സി

ദേശീയ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്സി തുടങ്ങിയ നേതാക്കൾ എൽ

എഫ് സ്ഥാനാർത്ഥികൾക്കായി ഇതി നകം തന്നെ വിവിധ തെരെഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തു വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ എത്തുന്നതോടെ സംസ്ഥാനം തീപാറുന്ന പ്രചരണത്തിന് സാക്ഷിയാകും

എം പോളിറ്റ്ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് കണ്ണൂർ മയ്യിലിൽ എൽ

എഫ് തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കു കയായിരുന്നു അദ്ദേഹം മതേതരത്വം കാത്തുസൂക്ഷിക്കുന്നതിന് എൽ ഡി എഫ് ശക്തിപ്പെടേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

ഡി എ

സ്റ്റേഡിയം കോർണറിൽ ന്നടിക്കുന്ന പൊതു സമ്മേളനത്തെ ശ്രീമതി നിർമ്മല സീതാരാമൻ അഭിസ്ക്ബോധന ചെയ്യും രമേശ് ചെന്നിത്തല മസാല ബോണ്ട് ഇടപാടിലെ ദൂരൂഹത അവസാനിപ്പിക്കാൻ തയ്യാറാകാതെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ജനങ്ങളുടെ ചോദൃത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ജനങ്ങളുടെ ആശങ്കകൾ പങ്കുവെക്കുമ്പോൾ തന്നെ രാജ്യദ്രോഹിയെന്നും വികസന വിരോധി യെന്നും വിളിച്ച് ആക്ഷേപിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

സ്ഥാനാർത്ഥികളെ തട്ടികൊണ്ടു പോകാനോ പ്രചാരണ സ്ഥലത്ത് അക്രമം നടത്താനോ സാധ്യതയുള്ളതായാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിലുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എൻ

സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പ ള്ളിക്കും എൽ

എഫ് സ്ഥാനാർത്ഥി പി

സുനീറിനും സുരക്ഷയ്ക്കായി ഓരോ ഗൺമാന്മാരെ നൽകാൻ തീരുമാനിച്ചു വനാതിർത്തിയിൽ രാഷ്ട്രീയപാർട്ടികൾ പ്രചാരണം നടത്തുമ്പോൾ സുരക്ഷ നൽകണമെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്

സ്ഥലത്ത് പോലീസ് തണ്ടർബേൾട്ട് സംയുക്ത് ഫ്രിശോധന നടത്തുന്നു ഹരിത ബൂത്ത് സ്വീപ്പ് വോട്ടർ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി കൊച്ചിയിൽ ഹരിത ബൂത്ത് പ്രവർത്തനമാരംഭിച്ചു

തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള മാനദണ്ഡങ്ങളും ഹരിതചട്ടവും പാലിച്ചാണ് ബൂത്ത് തയ്യാറാക്കിയിരിക്കുന്നത്

പോൾ മാനേജർ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കുറ്റമറ്റതാക്കാനും വിവരങ്ങൾ എളുപ്പത്തിൽ കൈമാറാനും ഉതകുന്ന പോൾ മാനേജർ എന്ന പേരിലുള്ള മൊബൈൽ ആപ്പ് ഉപയോഗപ്പെടുത്തും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രവും വിവിപാറ്റ് മെഷീനും ഉൾപ്പെടെയുള്ള പോളിംഗ് സാമ ഗ്രികളുമായി വോട്ടെടുപ്പിന്റെ തലേന്ന് പോളിൽ ് ഉദ്യോഗസ്ഥർ വിതരണ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്നതു മുതൽ പ്ലോട്ടിംഗ് അവസാനിച്ച് തിരികെ സ്വീകരണ കേന്ദ്രത്തിലെത്തുന്നതു വ്ട്രൈയുള്ള കാര്യങ്ങൾ അപ്പപ്പോൾ മേല ധികാരികളെ അറിയിക്കുന്നതിനുള്ളതാണ് പോൾ മാനേജർ ആപ്പ് ഇതോ ടൊപ്പം എന്തെങ്കിലും അനിഷ്ട് സർഭവങ്ങളുണ്ടാവുന്ന പക്ഷം ആപ്പിലെ എസ് ഒ എസ് ബട്ടൺ അ്മർത്തിയാൽ വിവരം അപ്പോൾ തന്നെ പോലിസ് ഉൾപ്പെടെയുള്ള അധികൃതർക്ക് ലഭ്യമാവുന്ന സംവിധാനവും ഇതിലുണ്ട്

ബാബുപോളിന് സാംസ്കാരിക കേരളത്തിന്റെ അന്ത്യാഞ്ജലി തിരുവനന്തപുരത്ത് പുന്നൻ റോഡിൽ സെന്റ് പീറ്റേഴ്സ് യാക്കോബ പള്ളിയിൽ പൊതുദർശനത്തിന് വച്ച മൃതദേഹത്തിൽ നിരവധിപേർ ആദരാഞ്ജലി അർപ്പിച്ചു പിന്നീട് മൃതദേഹം പൊതുദർശനത്തിനായി കവടിയാറിലെ സ്വവസതിയിലേയ്ക്ക് കൊണ്ടുപോയി ഇന്ന് പുലർച്ചെയാണ് ഡോ ബാബുപോൾ വിടവാങ്ങിയത്

സംസ്ക്കാരം നാളെ വൈകിട്ട് പെരുമ്പാവൂരിനടുത്ത് കുറുപ്പുംപടി യാക്കോബ പള്ളിയിൽ

മികച്ച ഭരണകർത്താവായും എഴുത്തുകാരനായും പ്രഭാഷകനായും തിളങ്ങിയ ബാബുപോൾ നാല് പതിറ്റാണ്ടിലേറെ സംസ്ഥാനത്തിന്റെ സാംസ്ക്കാരിക മേഖലയിൽ നിറഞ്ഞുനിന്നു

യ്ക്ക് മൂന്നാം റാങ്കും എം

യ്ക്ക് ഒന്നാം റാങ്കും ഐ

സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ അദ്ദേഹം പ്രതിരോധ ശാസ്ത്രത്തിലും വേദശാസ്ത്രത്തിലും മലയാള സാഹിതൃത്തിലും ഉപരിപഠനം നടത്തി എഞ്ചിനീയറായി ഒദ്യോഗിക ജീവിതം ആരംഭിച്ച് ഐ

എസിലേയ്ക്ക് എത്തിയ അദ്ദേഹം ഭരണരംഗത്തെ മികവുകൊണ്ട് പ്രത്യേക ശ്രദ്ധ ആകർഷിച്ചു അഡീഷണൽ ചീഫ് സെക്രട്ടറി തദ്ദേശസ്വയംഭരണ ഓംബുഡ്സ്മാൻ അംഗം കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ചെയർമാൻ കേരള സർവ്വകലാശാല വൈസ് ചാൻസലർ തുടങ്ങിയ നിർണ്ണായക പദവികൾ അദ്ദേഹം അലങ്കരിച്ചു സംസ്ഥാനത്തെ വൈദ്യുതി പദ്ധതിയായ ഇടുക്കി ജലവൈദ്യുത പദ്ധതി യാഥാർത്ഥമായത് ബാബുപോളിന്റെ നേതൃത്വത്തിലായിരുന്നു വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ പദ്ധതിക്കും അദ്ദേഹം തുടക്കം കുറിച്ചു

പത്രങ്ങളിലും ആനുകാലികങ്ങളിലും സ്ഥിരം പംക്തികൾ കൈകാര്യം ചെയ്തിരുന്നു

ഐ

എല്ലിൽ ഇന്ന് മുബൈയിൽ മുബൈ ഇൻഡ്യൻസ് രാജസ്ഥാൻ റോയൽസുമായി ഏറ്റുമുട്ടും രാത്രി എട്ടിന് മൊഹാലിയിൽ നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ കിംഗ്സ് ഇലവൻ പഞ്ചാബ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും ഇന്നലെ കൊൽക്കത്തയിലെ ഏദൻ ഗാർഡൻസിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് നൈറ്റ് റൈഡേഴ്സിന്റെ ഏഴ് വിക്കറ്റുകൾക്ക് പ രാജയപ്പെടുത്തി

സിന്ധു സിംഗപ്പൂർ ഓപ്പൺ വിമൺസ് ബാഡ്മിന്റന്റെ സെമി ഫൈനലിൽ ഇന്ന് ജപ്പാന്റെ രണ്ടാം സീഡ്സ് നൊവോമി ഒക്കു ഹാരയെ നേരിടും

രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവർ രക്തസാക്ഷികൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു

ഡയറിന്റെയും ദയാരഹിതമായ നയങ്ങൾക്കുമെതിരെ പ്രതിഷേധിക്കാൻ ഒത്തു ചേർന്ന ജനങ്ങൾക്കെതിരെ ബ്രിട്ടീഷ് പട നിറയൊഴിക്കുകയായിരുന്നു

ബ്രിട്ടീഷ് സാമ്രാജൃത്തിന്റെ പിടിയിൽ നിന്ന് വിടുതൽ നേടാൻ ഇന്ത്യൻ ജനത നടത്തിയ സ്വാതന്ത്യ സമര ചരിത്രത്തിൽ എന്നും അടിവരയിട്ട് സ്മരിക്കപ്പെടുന്നതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇന്ത്യൻ സ്വാതന്ത്രൃസമരത്തിന് പുതിയ ദിശാബോധം നൽകിയ ഈ സംഭവം നൂറ് വർഷം തികയുന്ന ഇന്നും നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യ സ്വാതന്ത്ര്യത്തിനു നേരെ കൊളോണിയൽ ഭരണം നടത്തിയിട്ട് കിരാത തേരോട്ടത്തിന്റെ ശേഷിപ്പായി തന്നെ വർത്തിക്കുന്നു

എന്തായാലും വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ മുൻഗാമികൾ നടത്തിയത് ഹീനമായ പ്രവൃത്തി തന്നെയെന്ന് തിരിച്ചറിയാനും ഖേദം പ്രകടിപ്പിക്കാനും കാലചക്രത്തിന് കഴിഞ്ഞു ഗർജ്ജിക്കുന്ന അധികാര ഹുങ്കിന് നേരെ സധൈരൃം മാറ് കാട്ടി പിടഞ്ഞുവീണ ആയിരക്കണക്കിന് രക്തസാക്ഷികളെ സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യം ആവോളം നുകരുന്ന ഇന്ത്യൻ ജനത അനുസ്മരിക്കുകയാണ് ഈ ദിനത്തിൽ